ഡി എഫ് യു ഡി എഫ് എൻ

ഇതോടെ സംസ്ഥാനത്ത് പ്രചാരണവും സജീവമാകുകയാണ്

ഡി എഫ്

എ

ഡി

വൈകിട്ട് ഏഴിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം